പ്രളയത്തിൽ നഷ്ടപ്പെട്ട പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് അടുത്തമാസം ആദ്യം പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നോട്ട്ബുക്ക് യൂണിഫോം ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നിവയും ഇതോടൊപ്പം വിതരണം ചെയ്യും നശിച്ച കംപ്യൂട്ടറുകൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസിക്ക് നല്കണം